ഇയാൾക്ക് കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് പൊലീസ്

പ്രധാന മന്ത്രി നരേന്ദ്ര മോദി ഉത്തർപ്ര ദേശിലെ മിർസാ പൂരിൽ ബൻസാഗർ കനാൽപദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചു സമൂഹ ത്തിലെ അധസ്ഥിതരുടെ പേരിൽ പ്രതിപക്ഷപാർട്ടികൾ മുതലക്കണ്ണീരൊ ഴുക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കർഷകരുടെ ജീവിതനില വാരം ഉയർത്താൻ എൻ

എ ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീക രിച്ചിട്ടുണ്ട് അടുത്തയിടെ ഭക്ഷ്യധാനൃങ്ങളുടേയും കാർഷിക ഉൽപ്പന്ന ങ്ങളുടേയും താങ്ങുവില ഉയർത്തിയതും രാസവളങ്ങളുടെ ലഭ്യത വർദ്ധി പ്പിച്ചതും ഇതിനുദാഹരണമാണെന്ന് മോദി പറഞ്ഞു അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ ഒരുപ്രതികൂടി പിടിയിലായി ആലുവസ്വദേശിയും ക്യാമ്പസ്ഫ്രണ്ട് എറണാകുളം ജില്ലാകമ്മറ്റി അംഗ വുമായ ഒരാളാണ് പൊലീസിന്റെ കസ്റ്റഡിയിലായത് ഇയാൾക്ക് കൊല പാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് പൊലീസ് കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തി ഇയാളുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലു കൊലപാതകത്തിൽപങ്കെ ടുത്ത പ്രതിയെ പിടികൂടിയതോടെ കേസിൽ നിർണ്ണായക വഴിത്തിരിവുണ്ടാ യതായി അന്വേഷണസംഘം കരുതുന്നു

എസ്ഡിപിഐ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഫഹദ് ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത് ഇവരെ പോലീസ്റ്റ് ചോദ്യം ചെയ്ത് വരുന്നു അഭിമന്യു കൊലപാതകത്തിൽ പൊലീസ് അനേഷണം ശരിയായ ദിശ യിൽ തന്നെയാണെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം പി

യഥാർത്ഥ പ്രതികളെ അധികംവൈകാതെ പിടികൂടുമെന്നുതന്നെയാണ് വിശ്വാസമെന്ന് അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ജലന്ധർ ബിഷപ്പിനെതിരെ കന്യാസ്ത്രീ നൽകിയ പരാതിയിൽ മേജർ ആർച്ച് ബിഷപ്പ് കാർദ്ദിനാൾ മാർ ജോർജ്ജ് ആലഞ്ചേരിയിൽ നിന്ന് മൊഴി യെടുത്തേക്കും പരാതിയിൽ സഭാ നേതൃത്വം നടപടിയെടുക്കാത്തതിനെ തുടർന്ന് കന്യാസ്ത്രീ പോലീസിന് നൽകിയ പരാതിയിലാണ് നടപടി

വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ കഴിയുന്ന ഓർത്തഡോക്സ് സഭാവൈദികർ നൽകിയ മുൻകൂർ ജാമ്യഹരജി നൽകി

ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച തിനെതുടർന്നാണ് ഇവർ സുപ്രീംകോടതിയെ സമീപിച്ചത് കേസിൽ അറ സ്റ്റിലായ രണ്ട് വൈദികരുടെ ജാമ്യഹർജി തിരുവല്ലകോടതി നാളെ പരിഗ ണിക്കും പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിൽ രാജ്യത്തെ സാമുദായിക കലാപങ്ങളെക്കുറിച്ചും അക്രമസംഭവങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി മറു പടി പറയണമെന്ന് ഇടതുകക്ഷികൾ ആവശ്യപ്പെടും

എമ്മും സി

ഐയും തീരുമാനിച്ചു ആർഎസ് എസും ബിജെപിയും നടപ്പാക്കുന്ന വിഭജനത്തിന്റെ രാഷ്ട്രീ യം പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് സ്റിപി എം നേതാവ് മുഹമ്മദ് സലീം ന്യൂഡൽഹിയിൽ പിടിഐയോട് പറഞ്ഞു ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുടെ ആക്രമണത്തിൽ രണ്ട് ബി

ജവാന്മാർക്ക് വീരമൃത്യു

ഛത്തീസ്ഗ ഡിലെ കാംഗർ ജില്ലയിലെ മഹ്ല ക്യാമ്പിനുസമീപമാണ് ആക്രമണമുണ്ടാ യത് വനത്തിൽ പരിശോധന നടത്തുകയായിരുന്ന ബിഎസ് എഫ് ജവാ ന്മാർക്കുനേരെ മാവോയിസ്റ്റുകൾ വെടിവെക്കുകയായിരുന്നുവെന്ന് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പൊലീസ് പി സുന്ദർരാജ് അറി യിച്ചു രാജസ്ഥാൻ സ്വദേശി ലോകേന്ദർസിംഗ് പഞ്ചാബ് സ്വദേശി മുക്തി യാർ സിംഗ് എന്നീ ബി

ജവാന്മാരാണ് അക്രമത്തിൽ വീര മൃത്യു വരിച്ചത് വനത്തിലേക്കു കടന്ന മാവോയിസ്റ്റുകൾക്കായി സുരക്ഷാ സേന പരിശോധിന തുടരുകയാണ്

ഫൈനലിൽ രാത്രി എട്ടരയ്ക്ക് മുൻ ജേതാക്കളായ ഫ്രാൻസ് ക്രൊയേഷ്യയെ നേരി ടും മോസ്കോ ലുഷ്നിക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം

ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ അവസാന മത്സരം മറ്റന്നാൾ നടക്കും മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ആതിഥേയരായ ഇംഗ്ലണ്ടും ഇന്ത്യയും ഓരോ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ചത്തെ മത്സരം ഇരുടീമുകൾക്കും നിർണ്ണായകമാണ്

മരുതോങ്കര കാവി ലുംപാറ പഞ്ചായത്തുകളിലാണ് കാർഷികവിളകൾക്ക് നാശനഷ്ടമുണ്ടാ യത് പുതുപ്പാടിയിൽ വാഹനത്തിനുമുകളിലേക്ക് മരം കടപുഴകിവീണെ ങ്കിലും അപകടം ഒഴിവായി

താമരശ്ശേരി തിരുവനമ്പാടി കോടഞ്ചേരി മേഖലകളിൽ വൻകൃ ഷിനാശവും സംഭവിച്ചിട്ടുണ്ട് മലയോര മേഖലകളിൽ ശനിയാഴ്ച വൈകീട്ട് തുടങ്ങിയ മഴ പുലർച്ചെവരെ തുടർന്നു കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ ഡാമുകളിൽ വെള്ളം നിറഞ്ഞു കക്കയം പെരുവണ്ണാമുഴി ഡാമുകളിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ജലനിരപ്പ് കൂടി

ജലനിരപ്പ് ഉയർന്നതിനെതുടർനന് വയനാട് ബാണാസുരസാഗർ അണ ക്കെട്ട് തുറന്ന് വിടാൻ സാധ്യതയുണ്ടെന്ന് വൈദ്യുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇരുകരകളിലുമുള്ളവർ ജാഗ്രിത പാലിക്കണമെന്ന് അറിയിപ്പിൽ പറഞ്ഞു സംസ്ഥാനത്ത് ബുധനാഴ്ചവരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയു ണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്

മീ വേഗതയിൽ കാറ്റിന് സാധ്യത യുണ്ടെന്നും മത്സ്യതൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും അറിയി പ്പിൽ വ്യക്തമാക്കി

രാമായണ പാരായണം സമൂഹ നാമജപം കഥാകഥ നം രാമയണ പ്രശ്നോത്തരി ആദ്യാത്മിക പ്രഭാഷണങ്ങൾ എന്നിവ യാണ് പ്രധാന പരിപാടികൾ

രാമായണ പാരായണം രാഷ്ട്രീയവത്കരിക്കരുതെന്ന് കെ

മുൻപ്രസിഡന്റ് വി

സുധീരൻ പറഞ്ഞു രാമനെ ചൂഷണം ചെയ്തത് ബിജെപിയാണ് ഇതിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഇപ്പോൾ സി

എം അടക്കം ചില രാഷ്ട്രീയപാർട്ടികൾ സ്വീകരിച്ചിരി ക്കുന്നത് ഈ നിലപാട് തിരുത്തണമെന്നും വിശ്വാസം വൃക്തികൾക്ക് വിട്ടുകൊടുക്കണമെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു കൈത്തറി വ്യവസായ രംഗത്ത് പുതിയ സാധ്യതകൾ ഒരുക്കുന്ന യുവവീവ് പദ്ധതിയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ നാളെ തുടക്ക മാകും കൈത്തറി മേഖലയുടെ പുനരുജ്ജീവനത്തിനും കൂടുതൽ തൊഴി ലവസരങ്ങൾ ഒരുക്കി പുതുതലമുറയെ ഈ മേഖലയിൽ സംരംഭകരാ ക്കുന്നതിനുമാണ് സംസ്ഥാന ഗവൺമെന്റ് പദ്ധതികൊണ്ട് ലക്ഷ്യ മിടുന്നത്

തിരൂരങ്ങാടി കൊണ്ടോട്ടി താലൂക്കുകളിലെ അന്തിമ ത്രിഡി വിജ്ഞാപനം ഈ ആഴ്ചയോടെ പുറ ത്തിറക്കും